പ്രഥമ സംയുക്ത സേനാ മേധാവിയായി ജനറൽ ബിപിൻ റാവത്ത് ചുമതലയേറ്റു മൂന്നു സേനകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ജനറൽ റാവത്ത്

ലോക കേരള സഭ്യുടെ രണ്ടാം സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം

ഡിസംബറിലെ ജി

വരുമാനം ഒരു ലക്ഷം കോടി രൂപ കവിഞ്ഞതായി കേന്ദ്ര ധനമന്ത്രാലയം

മൂന്നു സേനകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മെച്ചപ്പെട്ട ് വിഭവ വിനിയോഗം സേനാ വിഭാഗങ്ങളുടെ മികച്ച രീതിയിലുള്ള സമന്വയം എന്നിവയ്ക്കായിരിക്കും മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് സേനകളോടും നിഷ്പക്ഷത പാലിക്കുമെന്നും ജനറൽ റാവത്ത് ഉറപ്പ് നൽകി സേനകൾക്ക് ലഭ്യമായ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും ജനറൽ റാവത്ത് കൂട്ടിച്ചേർത്തു

ഏത് സുരക്ഷാവെല്ലുവിളികളും നേരിടാൻ സേന സുസജ്ജമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ഥാനമൊഴിഞ്ഞ കരസേനാ മേധാവി ജന്റൽ ബിപിൻ റാവത്തിൽ നിന്നും ബാറ്റൺ ഏറ്റുവാങ്ങിയ ശേഷം ജനറ്റൽ നരവണെ ആദ്യ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു അതിർത്തിയിൽ സമാധാനം തിരിച്ച് കൊണ്ടുവരുന്നതോടെ ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനാകുമെന്നും കരസേന മേധാവി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു

അത്യുത്സാഹത്തോടെ രാജ്യസേവനം നടത്തുന്ന വിശിഷ്ട വ്യക്തിത്വത്തിന് ഉടമയാണ് ജനറൽ റാവത്തെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

സൈന്യത്തെ നവീകരിക്കുകയെന്ന വലിയ ദൌത്യമാണ് ബിപിൻ റാവത്തിനുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

പ്രധാനമന്ത്രി കൃഷി സമ്മാൻ യോജനയുടെ ഭാഗമായി എട്ട് കോടി കർഷകർക്ക് ഡിസംബർ ജനുവരി കാലയളവിലെ ധനസഹായത്തിന്റെ വിതരണവും പ്രധാനമന്ത്രി നാളെ നിർവ്വഹിക്കും

ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ പ്രധാനമന്ത്രി സമ്മാനിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ആർ ഒ

ഇനുവരി മൂന്നാം വാരം മുതൽ ഇവർക്ക് റഷ്യയിൽ ബഹിരാകാശ യാത്രികർക്കുള്ള പ്രത്യേക പരിശീലനം നൽകും ഈ വർഷം തന്നെ ഗഗൻയാൻ വിക്ഷേപിക്കുമെന്നും ഐ എസ് ആർ ഒ

ചന്ദ്രയാൻ ദ ദൌത്യത്തിന് ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു

ഡി ബി ഐ

മത്സ്യ കൃഷിക്കെന്ന വ്യാജേനയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡുപയോഗിച്ച് പൂർണിയാണ് കേസിൽ ഐ ഡി ബി ഐ

കള്ളപ്പണ്ണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമപ്രകാരം സി ബി ഐ ്യും വിശ്രാഖപ്ട്ടണത്തെ ആന്റി കറപ്ഷൻ ബ്രാഞ്ചുമാണ് കേസെടുത്തത്

അസം ജനതയുടെ താത്പര്യങ്ങൾക്ക് വിരുദ്ധമായി താൻ ഒന്നും ചെയ്യില്ലെന്നും ശ്രീ

കോൺഗ്രസും ഇടത് പാർട്ടികളും പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് വ്യാജപ്രചാരണങ്ങൾ നടത്തുന്നതായി അദ്ദേഹം ആരോപിച്ചു

സഭാ നടപടികൾ നാളെ മുതൽ നിയമസഭാ മന്ദിരത്തിൽ ആരംഭിക്കും കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം വോയ്സ് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭയുടെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തു ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ പൊതുവേദി എന്ന ആശയമാണ് ലോക കേരള സഭയ്ക്ക് പിന്നിലുള്ളത്

വരുമാനം ഒരു ലക്ഷം കോടി രൂപ കവിഞ്ഞതായി കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി

റിട്ടേണുകളും കഴിഞ്ഞ വർഷം ഫയൽ ചെയ്തിട്ടുണ്ട്

ജെ

ജനങ്ങളോട് ഇരു പാർട്ടികളും മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

വനസംരക്ഷണത്തിൽ നിർണ്ണായക നേട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്

ഗുൽമാർഗിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കീയിംഗ് ആന്റ് മൌണ്ടനീറിംഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു് അദ്ദേഹം

എം

ബ്രോഡ്ബാൻഡ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും പൂർണ്ണമായി പുനസ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കശ്മീർ താഴ്വരയിലെ എല്ലാ ആശുപത്രികളിലും ഇന്ന് മുതൽ ബ്രോഡ്ബാൻഡ് സംവിധാനം പുനസ്ഥാപിച്ചിട്ടുണ്ട്

മഹാരാഷ്ട്രയിൽ മുംബൈ കടൽത്തീരത്തും മറൈൻ ര്യ്ഡ്വിലും ഇന്നലെ വൈകുന്നേരം മുതൽ ആയിരക്കണക്കിന് ആളുകൾ പുതുവൽസരാഘോഷത്തിന് ഒത്തു കൂടിയിരുന്നു ചെന്നൈിയിലെ മറീന ബീച്ചിൽ ആയിരങ്ങൾ പുതുവർഷത്തെ വരവേൽക്കാനായി തടിച്ചുകൂടി ഗോവയിലെ വിവിധ കടൽത്തീരങ്ങളിലും പുതുവർഷ ആഘോഷ പരിപാടികൾ നടന്നു വിവിധ സ്ഥലങ്ങളിലെ സംഗീത സന്ധ്യകളിലും സാംസ്കാരിക പരിപാടികളിലും വിനോദസഞ്ചാരികളും പങ്കെടുത്തു രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് നവവത്സര ആശംസകൾ നേർന്നു

ഇവയൊഴികെയുള്ള ഓർഡിനറി നോൺ എ

സി

ഓർഡിനറിയിൽ കിലോമീറ്ററിന് ഒരു പൈസയും മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസയും എ സി ക്ലാസുകളിൽ കിലോമീറ്ററിന് നാല് പൈസയുമാണ് കൂടുന്നത് സീസൺ ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ല

വരുന്ന ദിവസങ്ങളിലും മിതമായ തരത്തിലുള്ള മൂടൽമഞ്ഞ് തുടരും

ഡൽഹിയിലെ വായു മലിനീകരണ സൂചിക അതീവ രൂക്ഷ വിഭാഗത്തിൽ തുടരുന്നു

തീരുമാനത്തിൽ നിന്നു പിന്മാറാൻ അമേരിക്ക ഉത്തര കൊറിയയോട് ആവശ്യപ്പെട്ടു സംഘർഷമല്ല സമാധാനമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ വ്യക്തമാക്കി

ഇതോടെ ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വിൽപ്പന സൂക്ഷിക്കൽ എന്നിവ നിയമവിരുദ്ധമായി